നിയന്ത്രണങ്ങൾ ലഘൂക്കരിച്ചപ്പോഴും കേരളത്തിലെ കോവിഡ് മരണ നിരക്ക് കുറയ്ക്കാനായത് സമഗ്രമായ പ്രവർത്തന ഫലമായാണ്

കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളെന്ന് പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ലെന്നും ശ്രീമതി കെ

സി

ജെ

സംസ്ഥാന അദ്ധ്യക്ഷൻ കെ